സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റിയാദിൽ എത്തും

ന്യൂഡൽഹിയിൽ പ്രധാനമ്പ്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു

സ്ഥാനാർത്ഥി ആൽബർട്ടോ ഫെർണാണ്ടസിന് ജയം

ഇന്ന് രാത്രി അദ്ദേഹം റിയാദിൽ എത്തും സൌദി രാജാവും കിരീടാവകാശിയുമായ സൽമാൻ രാജാവിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം

സൌദിയിൽ നടക്കുന്ന ഭാവി നിക്ഷേപ സംരംഭക സമിതിയിൽ ശ്രീ

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ സമിതിക്ക് രൂപം നൽകാനുള്ള കരാറും ഒപ്പുവയ്ക്കുമെന്നാണ് പ്രതീക്ഷ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണിത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രിയും സൌദിയുടെ ഭാഗത്ത് നിന്ന് രാജാവും സമിതിയിൽ അധ്യക്ഷത വഹിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൽമാൻ രാജാവ് നാളെ അത്താഴ വിരുന്നൊരുക്കും അതേസമയം സൌദി അറേബ്യയുമായുള്ള ഉഭയകക്ഷി സഹ്ഹകരണത്തിൽ പ്രതിരോധം സുരക്ഷ വ്യാപാരം സംസ്കാരം വിദ്യാഭ്യാസം ജനസമ്പർക്കം എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

വോയ്സ് ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ നയങ്ങളിൽ യൂറോപ്യൻ യൂണിയനും ഇന്ത്യക്കും ഒരേ കാഴ്ചപ്പാടാണെന്നും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ബന്ധമാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഇടയിൽ നിലനിൽക്കുമെന്ന് ശ്രീ

നിരവധി അന്താരാഷ്ട്ര വിഷയങ്ങളെ സംബന്ധിച്ച് പ്രതിനിധികളുമായി പ്രധാനമന്ത്രി ചർച്ചു നടത്തി ആഗോള തീവ്രവാദം തടയുന്നതിന് അന്താരാഷ്ട്ര സഹകരണത്തിന്റെ പ്രധാന്യത്തെക്കുറിച്ചും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി

യൂറോപ്യൻ യൂണിയനുമായുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യമാണ് ഇന്ത്യ നൽകുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു സുഗമമായി വ്യാപാരം നടത്താൻ കഴിയുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയ്ക്ക് ഉണ്ടായ മുന്നേറ്റത്തെക്കുറിച്ചും രാജ്യത്തെ ജനങ്ങളുടെ ജീവിതസൌകര്യങ്ങൾ ഉയർത്തുന്നതിനുള്ള ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ചർച്ചുക്കിടെ പ്രധാനമന്ത്രി വ്യക്തമാക്കി

ജെ

യും ശിവസേനയും തമ്മിലുള്ള ചർച്ചകൾ തുടരുന്നു

ജെ

മുതിർന്ന നേതാവും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫഡ്നാവിസും ശിവസേനാ നേതാവും ഗതാഗത മന്ത്രിയുമായ ദിവാകർ റാവൂട്ടും ഗവർണർ ഭഗത് സിംഗ് കോഷ്യാരിയെ പ്രത്യേകം സന്ദർശിച്ചു

ജെ

അധ്യക്ഷൻ അമിത് ഷായും ശിവസ്നേനിഅധ്യക്ഷൻ ഉദ്ദവ് താക്കറെയും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഭരണം പങ്കിടുന്നത് സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമാവുക്യുള്ളു

അതേസമയം കഴിഞ്ഞ മൂന്ന് വർഷത്തെ അപേക്ഷിച്ച് സ്ഥിതി മെച്ചപ്പെട്ട് വരുന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു പുറമെയുള്ള് ആഘോഷങ്ങൾ ഒഴിവാക്കണമെന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു

ദീപാവലി ആഘോഷങ്ങളും അയൽ സംസ്ഥാനങ്ങളിൽ വിളവെടുപ്പിന് ശേഷം പാടം കത്തിക്കുന്നതുമാണ് ഇതിന് കാരണം

പൊതുജന പങ്കാളിത്തതോടെ ജനങ്ങളിൽ സത്യസന്ധത വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ശനിയാഴ്ച വരെ വാരാചരണം നടത്തുന്നത് സത്യനിഷ്ഠ ഒരു ജീവിതരീതി എന്നതാണ് വാരാചരണത്തിന്റെ പ്രമേയം വിവേചന രഹിതവും അഴിമതി രഹിതവുമായ സമൂഹത്തിന്റെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പ്രമേയം സഹായകമാകുമെന്ന് കമ്മീഷൻ അറിയിച്ചു

സുസ്ഥിര വികസനത്തിനും വളർച്ചയ്ക്കുമായി കമ്പിയികൾ സമൂഹത്തിനായി നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് കോർപ്പറേറ്റ് കാര്യമന്ത്രാലയം ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്

വാളയാറിൽ രണ്ട് പെൺകുട്ടികളുടെ ദുരൂഹമരണത്തിൽ പ്രതികളെ കോടതി വെറുതെ വിട്ട സംഭവത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി സംഭവത്തിൽ പൊലീസിന്റെയും പ്രോസിക്യൂഷന്റെയും ഭാഗത്ത് വീഴ്ചയുണ്ടോയെന്നും പുനരന്വേഷണ സാധ്യതയും പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചു മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു തുടർന്നുണ്ടായ പ്രതിപക്ഷ ബഹളത്തിനിടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു

സി ഇ

സ്വതന്ത്ര വ്യാപാര കരാറിൽ കേന്ദ്ര ഗവൺമെന്റ് പങ്കാളിയാകുന്നതിനെതിരെ സംസ്ഥാനത്ത് ഒറ്റക്കെട്ടായ പ്രതിഷേധം ഉയർന്നുവരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു ആസിയാൻ കരാറിന്റെ ഭാഗമായി തകരാത്ത മേഖലകളെ കൂടി ആർ

ഇ

കരാറിൽ നിന്ന് പിന്മാറാൻ എല്ലാ മേഖലകളിലുമുള്ളവരുടെ പ്രതിഷേധം ഉയർന്നുവരണമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു

ഇതിന്റെ പ്രഭാവത്തിൽ കേരള ലക്ഷദ്വീപ് തീരത്തിനിടയിൽ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട് അതിനൂർ ്മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥി പ്രകുപ്പ് അറിയിച്ചു തുലാവർഷവും ന്യൂനമർദ്ദ സ്വാധീനവും കാർണം അടുത്ത ദിവസങ്ങളിലും കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിൾക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് നാളെയും മറ്റെന്നാളും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു

അടുത്ത നാല് ദിവസം മഴയ്ക്ക് കുറവുണ്ടാവുമെന്നും തെളിഞ്ഞ കാലാവസ്ഥായായിരിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു

യുവിൽ നിന്നും പുറത്തുവരാൻ വ്യാഴാഴ്ചയായിരുന്നു യു

തീരുമാനിച്ചിരിക്കുന്ന ദിവസം പക്ഷേ ബ്രക്സിറ്റ് കരാറിന് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചിരുന്നില്ല

മൂൻ പ്രസിഡന്റ് ക്രിസ്റ്റീന കിർഷ്നർ വൈസ് പ്രസിഡന്റായി തിരിച്ചെത്തുന്നു ് എന്നതും ശ്രദ്ധേയമാണ്

പ്രസിഡന്റ ഷീ ജിൻ പിങിനെ സംബന്ധിച്ചിടത്തോളം നിർണ്ണായകമായിരിക്കും നാല് ദിവസം നീണ്ട് നിൽക്കുന്ന സമ്മേളനമെന്നാണ് കരുതപ്പെടുന്നത് ഹോങ്കോങ് പ്രക്ഷോഭത്തിന്റെയും അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധത്തിന്റെയും പശ്ചാത്തലത്തിനാണിത് പ്രസിഡന്റിന്റെ പ്രവർത്തന റിപ്പോർട്ട് അവതരണത്തോടെയാണ് രാവിലെ സമ്മേളനം ആരംഭിച്ചത്

ഗംഗാദേവിയെ പൂജിക്കുന്ന ഗോവർദ്ധന പൂജയിൽ പൂജാരിമാർ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തി

ചെനാബ് മേഖലയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മൊഹമ്മദ് അമീനും ഇതിൽ ഉൾപ്പെടുന്നു സഹായിക്കുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്